നടപടികളിലേക്ക് സംസ്ഥാനം ഇപ്പോൾ തന്നെ കടക്കണമെന്നും മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ചരക്ക് നീക്കവും നടക്കുന്നുണ്ട് എന്നാൽ രാജ്യത്തെ മറ്റു ഭാഗങ്ങളിൽ രോഗം എങ്ങനെ ബാധിക്കുന്നു എന്നതനുസരിച്ചാണ് സംസ്ഥാനത്തെ ഭക്ഷ്യസ്ഥിതി ഈ സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ വലിയ ഇടപെടൽ പ്രധാനമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുദ കണ്ണൂർ അടക്കം നാലു ജില്ലകൾ റെഡ് സോണിലാണെന്നും മേയ് മൂന്നു വരെ ജനങ്ങൾ പുറത്തിറങ്ങാതെ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇപ്പോൾ കൂടുതൽ രോഗികളുള്ള കണ്ണൂരിൽ ഒരു വീട്ടിലെ പത്തു പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം ബാധിച്ചു

കണ്ണൂരിൽ ഏഴും കാസർകോടും കോഴിക്കോടും നാലു വീതവും തിരുവനന്തപുരത്ത് ഒരാളും ആണ് രോഗമുക്തി നേടിയത്

രോഗവ്യാപനം പ്രവചനാതീതമാണെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്

പ്രതിസന്ധിയെ മറികടക്കുന്നത് എളുപ്പ ജോലിയല്ലെന്നും ജാഗ്രതക്കുറവ് ഉണ്ടാവാൻ പാടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രുമ കോവിഡ് രോഗവ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിശുദ്ധ റംസാൻ മാസത്തിൽ എല്ലാ ആരാധനാലയങ്ങളിലും നിലവിലെ സ്ഥിതി തുടരാൻ മുസ്ലീം സംഘടനാ നേതാക്കളും മതപണ്ഡിതൻമാരുമായും നടത്തിയ വീഡിയോ കോൺഫറൻസിൽ ധാരണയായതായി മുഖ്യമന്ത്രി പറഞ്ഞു നമസ്കാരത്തിനും ജുമയ്ക്കുമായി നിരവധി പേർ പള്ളിയിലെത്തുന്ന കാലമാണിത് റംസാൻ മാസത്തിലെ ഇഫ്താർ ജുമുഅ അഞ്ചു നേരത്തെ ജമാഅത്ത് നമസ്കാരം കഞ്ഞിവിതരണം പോലെ ദാനധർമ്മാദി പ്രവർത്തനങ്ങൾ തുടങ്ങിയവയെല്ലാം വേണ്ടെന്ന് വയ്ക്കും ഇന്നത്തെ സാഹചര്യത്തിൽ അതാണ് നല്ലതെന്ന് മതപണ്ഡിതൻമാർ വ്യക്തമാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് ഭക്ഷ്യകിറ്റ് നൽകുന്നത് റംസാൻ കാലത്ത് പതിവാണ് ഇത്തവണ ഈ കിറ്റ് അർഹരായവരുടെ വീടുകളിലെത്തിക്കുന്നത് വലിയ പുണ്യപ്രവൃത്തിയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു രുക കേന്ദ്ര വൈദ്യുതി നിലയത്തിൽ നിന്നുള്ള വൈദ്യുതിക്ക് ഫിക്സഡ് ചാർജ്ജ് ഒഴിവാക്കി നൽകണമെന്ന് കേന്ദ്രത്തോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അനുകൂല നിലപാടെടുത്താൽ ഉപഭോക്താക്കളുടെ ഫിക്സഡ് ചാർജ്ജ് ഒഴിവാക്കാൻ പിന്നീട് തീരുമാനം എടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങളുടെ എൽ

ടി വൈദ്യുതി കണക്ഷനുകളുടെ ഫിക്സഡ് ചാർജ്ജ് ആറ് മാസത്തേക്ക് ഒഴിവാക്കി

അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിന് ഹോം ഡലിവറി സംവിധാനം പലയിടങ്ങളിലും ആരംഭിച്ചു അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം

കഞ്ചിക്കോട് ഹാർഡ്വെയർ യൂണിറ്റിൽ ജോലി ചെയ്യുന്ന യു പി സ്വദേശി ഷാർജയിൽ നിന്നെത്തിയ കാവിൽപ്പാട് സ്വദേശി വിളയൂർ സ്വദേശി സേലത്ത് ലോറി ഡ്രൈവറായ കുഴൽമന്ദം സ്വദേശി എന്നിവർക്കാണ് രോഗം സ്ഥിരീകരിച്ചത് ഇവരുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരുന്നതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു

ഒതുക്കുങ്ങൽ ചെറുകുന്ന് സ്വദേശിയായ ഇയാൾ മലപ്പുറം ജില്ലയിൽ പ്രവേശിച്ചിട്ടില്ലെന്നും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഐസൊലേഷനിലാണെന്നും ജില്ലാ കലക്ടർ അറിയിച്ചു

ഇവിടങ്ങളിൽ അതീവ ജാഗ്രതയാണ് നിലനിൽക്കുന്നത് ദരദ പതിനൊന്നു ദിവസങ്ങൾക്കു ശേഷമാണ് കൊല്ലം ജില്ലയിൽ ഒരാൾക്കുകൂടി കോവിഡ് സ്ഥിരീകരിക്കുന്നത്

തമിഴ്നാട്ടിലെ അതിർത്തി പ്രദേശമായ പുളിയം കുടിയിൽ മരണാനന്തര കർമങ്ങളിൽ ഇയാൾ സംബന്ധിച്ചതായി തമിഴ്നാട് പൊലീസിൽ നിന്നും വിവരം ലഭിച്ചിരുന്നു

ദ്രദ കൊല്ലം ജില്ലയിൽ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന തെന്മല ആര്യങ്കാവ് കുളത്തൂപ്പുഴ പഞ്ചായത്തുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കലക്ടർ ഉത്തരവായി

ഇതോടൊപ്പം നെടുങ്കണ്ടം ഗ്രാമ പഞ്ചായത്തിലെ പത്താം വാർഡ് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നതിനാൽ ഈ വാർഡിലും മേയ് മൂന്നു വരെ നിരോധനാജ്ഞ ഏർപ്പെടുത്തി

അമേരിക്കയിൽ മാത്രം കോവിഡ് രോഗികളുടെ എണ്ണം എട്ട് ലക്ഷം പിന്നിട്ടു

നഗര പ്രദേശങ്ങളിൽ പ്രീ പെയ്ഡ് മൊബൈൽ റീചാർജ്ജ് കേന്ദ്രങ്ങളും ഭക്ഷ്യ സംസ്കരണ കേന്ദ്രങ്ങളും ലോക്ക്ഡൌണിൽ നിന്ന് ഒഴിവാക്കി

വിദ്യാഭ്യാസ ആവശ്യത്തിന് പുസ്തകങ്ങൾ വിൽക്കുന്ന ബുക്ക് ഷോപ്പുകൾക്കും ഇലക്ട്രിക് ഫാൻ കടകൾക്കും ഇളവ് അനുവദിച്ചിട്ടുണ്ട്